താഴ്ന്ന പ്രദേശങ്ങ ളിൽ വെള്ളം ഇറങ്ങി തുടങ്ങി

പകർച്ചവ്യാധികൾ തടയാൻ ആരോഗ്യ ജാഗ്രതാ ക്യാമ്പെയിൻ ശക്തമായി തുടരുമെന്ന് മന്ത്രി കെ

പാരിസ്ഥിതിക ദുർബല പ്രദേശങ്ങളിൽ നിർമ്മാണ പ്രവർത്തന ങ്ങൾക്ക് കർശന വിലക്കേർപ്പെടുത്തണമെന്ന് വി

അച്യു താനന്ദൻ മൂന്നാറിൽ പുഴയുടെ ഒഴുക്കിന് തടസമായ കയ്യേറ്റങ്ങൾക്കെതിരെ റവന്യു വകുപ്പ് നിയമ നടപടി സ്വീകരിക്കും

ഇവർ ഉടൻ തിരിച്ചെത്തുമെന്ന് വിദേശകാരൃ സഹമന്ത്രി വി മുരളീധരൻ ൾ ൽ ൾ സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറഞ്ഞു താഴ്ന്ന പ്രദേശങ്ങ ളിൽ വെള്ളം ഇറങ്ങി തുടങ്ങി

മലപ്പുറത്തെ കവളപ്പാറയിലും വയനാട്ടിലെ പുത്തുമലയിലും ഉരുൾപ്പൊട്ടലിൽ കാണാതായവർക്ക് വേണ്ടി തിരച്ചിൽ ഇന്നും തുട രും

ഇടുക്കി കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് കനത്ത മഴയുടെ സാധൃത കണക്കിലെടുത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കോഴിക്കോട് കണ്ണൂർ എറണാകുളം തൃശൂർ ജില്ലകളിൽ ദുരി താശ്വാസ കൃാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദൃാഭൃാസ സ്ഥാപന ങ്ങൾക്ക് ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചു കോഴിക്കോട് ജില്ല യിൽ അപകടാവസ്ഥയിൽ കഴിയുന്ന ഫിറ്റ്നെസ് ലഭിക്കാത്ത സ്കൂളു കൾക്കും ഇന്ന് അവധിയായിരിക്കും കോട്ടയം ജില്ലയിലെ കോട്ടയം വൈക്കം ചങ്ങനാശേരി താലൂ ക്കുകളിലെ പ്രൊഫഷണൽ കോളജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാ ഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് കലക്ടർ അവധി പ്രഖ്യാപിച്ചു മീന ച്ചിൽ കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ ദുരിതാശ്വാസ കൃാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അവധിയായിരിക്കും ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് താലൂക്കിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർ അവധി പ്രഖ്യാപിച്ചു മറ്റിടങ്ങളിൽ ദുരി താശ്വാസ കൃാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കായിരിക്കും അവധി

മറ്റ് താലൂക്കുക ളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമായിരിക്കുമെന്ന് കലക്ടർ പറഞ്ഞു പ്രളയത്തിന് ശേഷം പകർച്ചവ്യാധികൾ തടയാൻ ആരോഗ്യ ജാഗ്രതാ ക്യാമ്പയിൻ ശക്തമായി തുടരുമെന്ന് മന്ത്രി കെ

വയനാട് കലക്ട്രേറ്റിൽ ആരോഗ്യ വകുപ്പ് ഉദ്യോഗ സ്ഥരുടെയും വിവിധ വകുപ്പ് മേധാവികളുടെയും യോഗത്തിൽ സംസാരിക്കുയായിരുന്നു മന്ത്രി തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വഴി ശുദ്ധമായ കുടിവെള്ളം വിതരണം ചെയ്യുന്നു എന്ന് ഉറപ്പാക്കാൻ ആരോഗ്യ പ്രവർത്തകർ മുൻകൈയ്യെടുക്കണമെന്നും കെ

കാലവർഷക്കെടുതിക്കിരയായവർ ്കഴിയുന്ന വയനാട് മേപ്പാടി യിലെ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകൾ മന്ത്രി കെ

അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു കുന്നിൻമു കളിലെ തടയണകളും ഇതര നിർമ്മിതികളും പൊളിക്കണമെന്നും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഇനിയൊരു പ്രളയം വരെ കാത്തി രിക്കേണ്ടതില്ലെന്നും അദ്ദേഹം വൃക്തമാക്കി നെൽവയൽ നീർത്തട സംരക്ഷണ നിയമത്തിൽ ഇളവുകൾ വരു ത്തുന്നതും പാറ ഘനനത്തിന് യഥേഷ്ടം അനുമതി നൽകുന്നതും അനധികൃത നിർമ്മാണങ്ങൾ സാധൂകരിക്കുന്നതുമെല്ലാം തെരഞ്ഞെ ടുക്കപ്പെട്ട ഗവൺമെൻ്റുകളാകുമ്പോൾ ജനങ്ങൾ നിസ്സഹായരായി പോവുകയാണെന്ന് അദ്ദേഹം ഫെയ്സ്ബുക്ക് പോസ്റ്റിൽ അഭിപ്രായ പ്പെട്ടു ഗവൺമെന്റ് അനുമതി നൽകിയതുകൊണ്ടാണ് പാറമടകൾ ഉണ്ടാ യതെന്നും ദുരന്തത്തിന് അതെല്ലാം കാരണമായ വസ്തുത മറന്നുകൂ ടെന്നും വി എസ് ഓർമ്മിപ്പിച്ചു

മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കണമെന്ന ജനകീയ ആവശ്യ ഉയർന്നു കഴിഞ്ഞുവെന്നും അടിയന്തര ഇടപെടലുകൾ ഉണ്ടായില്ലെ ങ്കിൽ വരാനിരിക്കുന്ന ദുരന്തങ്ങൾക്ക് നാം തന്നെയായിരിക്കും ഉത്ത രവാദികളെന്നും അച്യുതാനന്ദൻ പറഞ്ഞു കുട്ടനാട്ടിലെ കർഷകരുടെ ദീർഘകാല ആവശ്യമായിരുന്ന പുറം ബണ്ടിന്റെ ബലപ്പെടുത്തൽ നടപടി അടുത്ത രണ്ടാം കൃഷിക്ക് മുൻപായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി ഡോ

യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും റീബിൾഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇതിനാവശ്യമായ തുക ലഭ്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചു മഴക്കാലത്ത് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലുണ്ടാകുന്ന ഗതാഗത തടസ്സം ഒഴിവാക്കുന്നതിനായി നിലവിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ എട്ട് ദുരിതാശ്വാസ കൃാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്

ഉരുൾപ്പൊട്ടലിൽ നാല് പേർ മരിക്കുകയും വൻ നാശം സംഭവിക്കുകയും ചെയ്ത വടകര വിലങ്ങാട് മൂന്ന് ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്

തകർന്ന വൈദ്യുത തൂണുകൾ നന്നാ ക്കുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്

മണ്ണാർക്കാട് ആലത്തൂർ താലൂക്കുകളിൽ മാത്രമാണ് നില വിൽ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്

കുട്ടനാട്ടിൽ ജലനിരപ്പ് മാറ്റമില്ലാതെ തുട രുകയാണ് പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു അഞ്ച് സെന്റിമീറ്റർ വീതം രണ്ട് ഷട്ടറുകളാണ് ഉയർത്തിയത് വൃഷ്ടി പ്രദേശത്തെ മഴമൂലം റിസർവോയറിലേക്ക് നീരൊഴുക്ക് കൂടിയ സാഹചര്യത്തിലാണിത് പീച്ചിയിലെത്തിയ മന്ത്രി എ

മൊയ്തീന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ഉന്നതതല യോഗം സ്ഥിതി വിലയിരുത്തി

മണിക്കൂറിൽ ഒരു സെന്റിമീറ്റർ എന്ന തോതിൽ ജലനിരപ്പുയരുന്നുണ്ട്

ഈ സാഹചര്യത്തിലാണ് ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ഡാമിന്റെ ഷട്ടറുകൾ തുറ ക്കാൻ തീരുമാനിച്ചത് കോഴിക്കോട് ജില്ലയിൽ പ്രളയത്തിൽ കേടുവന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണിക്കായി ക്യാമ്പുകൾ ഇന്നാരംഭിക്കും മൊബൈൽ ഫോൺ ഉൾപ്പെടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ പ്രാഥമിക അറ്റകുറ്റപ്പണികൾ നിർവ്വഹിക്കുന്നതിന് ആദ്യ ക്യാമ്പ് ഇന്ന് മാളിക്കടവ് ഐടിഐയിൽ നടക്കും കോഴിക്കോട് ജില്ലയിൽ മഴക്കെടുതി അതിജീവിച്ചവരുടെ മാന സികാരോഗൃം സംരക്ഷിക്കാൻ പദ്ധതി തയാറാക്കി പ്രളയക്കെടുതി അതിജീവിച്ചവർക്ക് വിവിധ വകുപ്പുകളുടേയും ഏജൻസികളുടേയും സഹായത്തോടെ മാനസികവും സാമൂഹികവുമായ പിന്തുണ നൽകും ശാസ്ത്രീയവും സംഘടിതവുമായ ഇടപെടലാണ് ഇതി നായി നടത്തുന്നത് മൂന്നാറിൽ കഴിഞ്ഞ രണ്ട് മഴക്കാലങ്ങളിലും പ്രളയമെത്തിയതോടെ പുഴയുടെ ഒഴുക്കിന് തടസമായ കയ്യേറ്റങ്ങൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കാൻ റവന്യൂ വകുപ്പ് നീക്കം തുടങ്ങി മൂന്നാർ ടൌണിലും പഴയ മൂന്നാറിലും പൂഴയുടെ ഒഴുക്കിന് തടസം സൃഷ്ടി ക്കുന്ന വിധത്തിൽ നടത്തിയ നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുമെന്ന് ദേവികുളം സബ്കളക്ടർ ഡോ

ഇതിന്റെ ഭാഗമായി പുഴയോരത്തെ അനധികൃത കെട്ടിടങ്ങളുടെ ലിസ്റ്റ് തയാറാക്കാൻ മൂന്നാർ തഹസിൽദാറെ നിയോഗിച്ചിട്ടുണ്ട് അദ്ദേഹം നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കല ക്ടർക്ക് റിപ്പോർട്ട് നൽകും കലക്ടറുടെ നിർദേശ പ്രകാരമായിരിക്കും തുടർ നടപടികൾ ഇടുക്കി ജില്ലയിൽ സാഹസിക വിനോദ സഞ്ചാരത്തിന് ഏർപ്പെ ടുത്തിയ നിരോധനം നാളെ വരെ തുടരുമെന്ന് ജില്ലാ കലക്ടർ അറി യിച്ചു കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ഇന്ന് ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണിത് ബ്രിട്ടൺ പിടികൂടിയ ഇറാനിയൻ എണ്ണ ടാങ്ക്റായു ഗ്രേസ് വണ്ണിലെ മൂന്ന് മലയാളികൾ ഉൾപ്പെടെ എല്ലാ ഇന്ത്യക്കാരേയും മോചിപ്പിച്ചു വിദേശകാരൃ സഹമന്ത്രി വി

ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മഷീണറുമായി സംസാരിച്ചെന്നും ജീവനക്കാരെ മോചിപ്പിച്ച വിവരം അദ്ദേഹം സ്ഥിരീകരിച്ചെന്നും മുര ളീധരൻ പറഞ്ഞു

ഗ്രേസ് വൺ കമ്പനിയിൽ ജൂനിയർ ഓഫീസറായ വണ്ടൂർ സ്വദേശി കെ

അജ്മൽ ഗുരുവായൂർ സ്വദേശി റെജിൻ കാസർകോട് സ്വദേശി പ്രബീഷ് എന്നിവരാണ് കപ്പലിൽ ഉണ്ടായി രുന്ന മലയാളികൾ റഷ്യ ലാത്തിയ ഫിലിപ്പൈൻസ് എന്നീ രാജ്യക്കാരും കഴിഞ്ഞ ഒരു മാസമായി പിടിച്ചെടുത്ത കപ്പലിൽ കഴിയുന്നുണ്ട്

അതേസമയം ബ്രിട്ടൺ പിടിച്ചെടുത്ത ഇറാനിയൻ എണ്ണ ടാങ്കർ ഗ്രേസ് വൺ വിട്ടയക്കാൻ ജിബ്രാൾട്ടർ സൂപ്രീം കോടതി ഉത്തരവിടു കയായിരുന്നു

അമേരിക്കയുടെ ആവശ്യം തള്ളിയാണ് സുപ്രീം കോടതി ഉത്തരവ് ജമ്മുകശ്മീരിലെ നിയന്ത്രണ രേഖയിൽ അതിർത്തി കടന്ന് നട ത്തിയ ഏറ്റുമുട്ടലിൽ അഞ്ച് ഇന്ത്യൻ സൈനികരെ വധിച്ചുവെന്ന പാകി സ്ഥാന്റെ അവകാശവാദം ഇന്ത്യ തള്ളി

ഏറ്റമുട്ടലിൽ അഞ്ച് ഇന്ത്യൻ സൈനികരും മൂന്ന് പാക് സൈനി കരും മരിച്ചുവെന്നായിരുന്നു പാകിസ്ഥാൻ സൈനിക വക്താവ് അവ കാശപ്പെട്ടിരുന്നത് രാജ്യം ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്ക് മുക്തമാക്കു ന്നതിന് വ്യാപക പ്രചാരണം സംഘടിപ്പിക്കുമെന്ന് കേന്ദ്ര മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ അറിയിച്ചു ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റി ക്കുകൾ ജനങ്ങൾ ഒഴിവാക്കണമെന്നും പരിസ്ഥിതി സംരക്ഷത്തിന് തുണിയുടേയും ചണത്തിന്റേയും സഞ്ചികൾ ഉപയോഗിക്കണമെന്നും അദ്ദേഹം ബ്രസീലിലെ സാവോപോളോയിൽ പറഞ്ഞു മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം വി

ഹൃദ യാഘാതത്തെ തുടർന്ന് ചെന്നൈയിലായിരുന്നു അന്ത്യം

ക്രിക്കറ്റ് ലോകത്ത് വി ബി എന്നറിയപ്പെട്ടിരുന്ന അദ്ദേഹം ഇന്ത്യ യുടേയും തമിഴ്നാടിന്റേയും ഓപ്പണർ എന്ന നിലയിലും ശ്രദ്ധേയ പ്രകടനം കാഴ്ച്ചവെച്ചിരുന്നു

ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ശേഷം കോച്ചായും കമന്റേ റ്ററായും പ്രവർത്തിച്ചു കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ച്ഛ്ഭാരത് മിഷന്റെ ഭാഗമായ വെളിയിട വിസർജ്ജനമുക്ത പദ്ധതിയിൽ ശുചിമുറി നിർമ്മിക്കുന്നതിന് മാനദ ണ്ഡങ്ങൾ പ്രകാരം യോഗൃത ഉണ്ടായിട്ടും ഒഴിവായി പോയവർക്ക് ശുചിമുറി നിർമ്മിക്കുന്നതിന് പ്രത്യേക യജ്ഞം നടത്തുമെന്ന് ശുചി ത്വമിഷൻ കോഴിക്കോട് ജില്ലാ കോർഡിനേറ്റർ അറിയിച്ചു ബിപി എൽ കുടുംബങ്ങൾക്ക് മാത്രമാണ് യജ്ഞത്തിന്റെ ഭാഗമായി ആനു കൂല്യം ലഭിക്കുക

ഖാദി ബോർഡിന്റെ ഓണം ഖാദി മേള കണ്ണൂരിൽ തുടങ്ങി മന്ത്രി ഇ

പാലക്കാട് ഈറോഡ് പാസഞ്ചർ ഈറോഡ് പാലക്കാട് പാസ ഞ്ചർ പാലക്കാട് തിരുച്ചിറപ്പള്ളി തിരുച്ചിറപ്പള്ളി പാലക്കാട് പാസ ഞ്ചർ ഹൈദരാബാദ് കൊച്ചുവേളി സ്പെഷ്യൽ ട്രെയിൻ കൊച്ചു വേളി ഹൈദരാബാദ് ട്രെയിൻ എന്നിവയാണ് ബുധനാഴ്ച്ച വരെ പൂർണമായും റദ്ദാക്കിയത് മംഗളൂരു ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് അടക്കം ചില ട്രെയി നുകൾ പൊള്ളാച്ചി പഴനി ഡിണ്ടിഗൽ വഴി തിരിച്ചു വിടും